അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് സൂപ്രീം കോടതി

സൂപ്രിംകോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധൃസ്ഥരെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സു്രേന്ദ്രൻ ബ്രുവറി വിവാദത്തിൽ പ്രതിപക്ഷം ജനങ്ങളെ ന് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ

കർഷകർക്ക് മാത്രമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ

ദേശീയ അയ്യപ്പ ഭക്ത സംഘം സമർപ്പിച്ച പുനപ്പരിശോധന ഹർജിയാണ് അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് വ്യക്തമാക്കിയത് ഹർജി അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കണമെന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിധിക്കെതിരെ തെരിവിൽ ഇറങ്ങുന്നതെന്നും അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ കേൾക്കാൻ തയ്യാറാകാതിരുന്ന കോടതി ഈ വിഷയം മറ്റ് പുനപ്പരിശോധന ഹർജികൾക്കൊപ്പം പരിഗണിക്കുമെന്ന് അറിയിച്ചു ശബരിമലയിൽ ചടങ്ങുകൾ തുടങ്ങുന്ന സമയം അടുത്തതിനാൽ ഹർജിയുടെ സ്വഭാവം മനസ്സിലാക്കണമെന്ന വാദവും കോടതി പരിഗണിച്ചില്ല പന്തളം രാജകുടുംബവും തിരുവിത്രിാറ്റകൂർ ദേവസ്വംബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപ്പാലകൃഷ്ണനും ഇന്ന് പുനപ്പരിശോധനാ ഹർജി നൽകുന്നുണ്ട്

ശരിയായ ഭക്തരുടെ വിഷമം ഗവൺമെന്റ് മനസിലാക്കുന്നു

ചിലർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്പലങ്ങൾക്കെതിരെ അക്രമം അഴിച്ചു വിടാൻ അനുവദിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു

വിഷയത്തിൽ സമരത്തിനില്ലെന്ന കോൺഗ്രസ് നിലപാട് അപലപനീയമാണെന്നും ഇത്തരം നിലപാടുകളിലൂടെയൊക്കെ സിപിഎംകോൺഗ്രസ് രഹസ്യ ധാരണകളാണ് പുറത്ത് വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാർച്ച് ശബരിമല ശബരിമലയിലെ ആച്ചാരാനുഷ്ടാനങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നിയമന്ദ്രിർമാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ് വിഷയത്തിലെ ഗവൺമെന്റ് നിലപാട് വിശദീകരിച്ച് പത്തനംതിട്ടയിൽ സി

എം വനിതാസംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന് വിശദീകരണ യോഗം പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു

എന്ന് വിലയിരുത്തൽ എന്നാൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട് ബംഗാൾ ആന്ധ്രപ്രദേശ് കർണാടക ഗോവ തീരങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഹൈദരാബാദിലെ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവ്വീസ് ഡയറക്ടർ ഡോ

മഴയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പും ക്രമീകരിച്ചു

പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് നിർദേശം

പൂർണമായും തകർന്നത്

രാമകൃഷ്ണൻ ബ്രൂവറി വിഷയത്തിൽ ഗവൺമെന്റിന്റെതിരെയും എക്സൈസ് വകുപ്പിനെതിരെയും ഉയർന്നുവരുന്നു ആരോപണണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ട്ടി

ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്റാണ് ആരോപണമുന്നയിക്കുന്നവർ ശ്രമിക്കുന്നത് തന്റെ കൈക്ർ ഈ വിഷയത്തിൽ ശുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചർത്തു

നികുതി ചീട്ട് ഹാജരാക്കി അനർഹർ വായ്പകൾ കൈക്കലാക്കുന്നതായി വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം

ശബരിമല മണ്ഡലമകരവിളക്ക് തീർഥാടനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ചേർന്ന അവലോകന യോഗത്തിൽ അദ്ധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം നിലയ്ക്കലിലെ പാർക്കിംഗ് സൌകര്യം വിപുലപ്പെടുത്തും

എൻ പാലൂര് എന്ന മാധവൻ നമ്പൂതിരി അന്തരിച്ചു

ഇന്നു രാവിലെ കോഴിക്കോട് കോവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം ഉഷസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കവിത പേടിത്തൊണ്ടൻ കലികാലം തീർത്ഥയാത്ര സംഗമഗീതം ഭംഗിയും അഭംഗിയും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ

ചൈനയാണ് ഒന്നാമത്